ഇന്ന് പൊതു അടച്ചിടൽ അവശ്യസർവ്വീസുകൾക്ക് മാത്രം അനുമതി

ഫ്രാൻസിൽ മരണ നിരക്കിൽ ഗണ്യമായ കുറവ്

ന്യൂസ്ഡസ്ക് ആകാശവാണി

ഗുജറാത്ത് തമിഴ്നാട് ഉത്തർപ്രദേശ് ഡൽഹി രാജസ്ഥാൻ മധ്യപ്രദേശ് പഞ്ചാബ് പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലേക്കാണ് കേന്ദ്രസംഘം എത്തുക സംസ്ഥാനങ്ങളിലെ ആരോഗ്യ പ്രിക്കുപ്പുമായി ചേർന്ന് രോഗബാധ നിയന്ത്രണവിധ്യമിക്കുകയാണ് ലക്ഷ്യമെന്ന് ആകാശവാണി ലേഖകൻ ് റിപ്പോർട്ട് ചെയ്യുന്നു

ലോക്ഡൌണിൽ കുടുങ്ങിപ്പോയ അന്യസംസ്ഥാനക്കാർക്കുള്ള ട്രെയിൻ സർവ്വീസ് തുടരുന്നു വിശദാംശങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

ആഴ്ച പരീക്ഷണാടിസ്ഥാനത്തിലാണ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു

ബി എസ്

റഷ്യ മെക്സികോ ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ മരണസംഖ്യയും രോഗബാധിതരുടെ എണ്ണവും ദിനംപ്രതി വർദ്ധിക്കുകയാണ് ഫ്രാൻസിൽ മരണ നിരക്കിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി

മാതൃത്വത്തിന്റെ മഹനീയഭാവമായ അർപ്പണ ബോധം ലോകമെമ്പാടും പ്രകടമാവുന്ന ഈ കോവിഡ് കാലത്തെ ദിനാചരണത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് കോവിഡ് പോരാട്ടത്തിൽ മുൻനിരൂയിലുള്ള അമ്മമാരായ ആരോഗ്യപ്രവർത്തകരുടെ ത്യാൽപ്പും ഇൌ കോവിഡ് കാലത്ത് കുടുംബത്തെയും കാണ്ണാനാകാതെ രോഗികൾക്കൊപ്പം സമയം ചിലവഴിക്കുന്നു അവർക്കായി ഈ മാതൃദിനം സമർപ്പിക്കാം